കെ ശൈലജ

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി കൊറോണ വൈറസിനെതിരായ ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം

ഇന്ന് ഓരോ കേന്ദ്രത്തിലും നൂറോളം പേർക്കാണ് വാക്സിൻ നൽകുന്നത്

രാജ്യത്ത് നിർമ്മിച്ച കോവിഷീൽഡ് കോവാക്സിൻ വാക്സിനുകളാണ് വിതരണം ചെയ്യുന്നത് രും രാജ്യവ്യാപകമായി കോവിഡ് വാക്സിൻ നൽകുന്നതിന് നടത്തിയ തയാറെടുപ്പുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ ഹർഷ് വർധൻ അവലോകനം ചെയ്തു ഡൽഹി നിർമ്മാൺ ഭവനിൽ സ്ഥാപിച്ച കോവിഡ് കൺട്രോൾറൂം സന്ദർശിച്ച അദ്ദേഹം വാക്സിൻ നൽകുന്നതിന് വികസിപ്പിച്ച കോവിൻ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ് ഫോമിന്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്തു രും കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ

രാവിലെ ഒമ്പത് മുതൽ വൈകീട്ട് അഞ്ചു വരെയാണ് വാക്സിൻ വിതരണം

എൽ കോവിഷീൽഡ് വാക്സിനാണ് നൽകുന്നത്

ഉദ്ദേശിച്ച ഫലം ലഭിക്കാൻ രണ്ടു ഡോസെടുക്കണം വാക്സിൻ നൽകുന്ന എല്ലാ കേന്ദ്രങ്ങളിലും വെബ് കാസ്റ്റിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

രും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കൊവിഡ് വാക്സിൻ കുത്തിവയ്പ് ആദ്യ ഘട്ടത്തിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ സമൂഹത്തിന് കൊവിഡ് നേരിടാൻ കരുത്തുപകർന്നുവെന്നും കൊവിഡ് വാക്സിനേഷന്റെ വിജയത്തിനും അതേ ജനപങ്കാളിത്തമാണ് കേന്ദ്രഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

രംഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രാരംഭ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ അന്താരാഷ്ട്ര ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും

രണ്ടു ദിവസത്തെ ഉച്ചകോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു

തോമസ് ഐസക്ക് അവതരിപ്പിച്ച ബജറ്റിന്റെ കാതലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭാവി കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ്യമാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു

സംസ്ഥാനത്തെയും അത് ബാധിച്ചു ആ പ്രതിസന്ധിയെ കോവിഡ് മഹാമാരിയുടെ വരവ് അതിസങ്കീർണമാക്കി സാമൂഹിക സാമ്പത്തിക മേഖലകളെ ശക്തിപ്പെടുത്തി അതിനെ മുറിച്ചുകടക്കാൻ ശ്രമങ്ങളിലാണ് സംസ്ഥാന ഗവൺമെന്റെന്നും അതിന് പ്രായോഗിക മാർഗമാണ് ഈ ബജറ്റിലൂടെയും കണ്ടെത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുര സംസ്ഥാന ബജറ്റിൽ വീണ്ടും കോഴിക്കോടിനെ തഴഞ്ഞെന്ന് എം

രും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ പ്രഖ്യാപനമാണ് ബജറ്റിലുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രും ബജറ്റിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഇക്കോണമി നോളജ് സൊസൈറ്റി ഇന്നവേഷൻ സൊസൈറ്റി സ്റ്റാർട്ട് അപ്പുകൾ എന്നിവയുടെ വികസനത്തിനായി വർധിച്ച വിഹിതവും നീക്കവും സ്വാഗതാർഹമാണെന്ന് ഫിക്കി കേരള സ്റ്റേറ്റ് കൌൺസിൽ കോ ചെയർമാൻ ദീപക് എൽ

ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ഗോവ മുഖ്യമന്ത്രി ഡോ

ഇറ്റാലിയൻ ഛായാഗ്രാഹകൻ വിറ്റോറിയോ സ്റ്റൊറാറയെ പ്രശസ്തമായ ലൈഫ് അച്ചീവ്മെന്റ് അവാർഡ് നൽകി ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കും

മത്സര വിഭാഗത്തിൽ ഇത്തവണ മലയാള ചിത്രങ്ങളില്ല രും സിഡ്നിയിൽ ഇന്ത്യയ്ക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് മൂന്ന് വിക്കറ്റ് കൂടി നഷ്ടമായി

ഇന്ന് രാത്രി ഏഴരയ്ക്ക് മുംബൈ സിറ്റി എഫ് സി ഹൈദരബാദ് എഫ് സിയെ നേരിടും ദേഴ കോവളത്തിനു സമീപം വെള്ളാറിൽ നിർമ്മിക്കുന്ന കേരള കലാ കരകൌശലഗ്രാമത്തിന്റെ ആദ്യഘട്ടം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനു സമർപ്പിക്കും ക്രാഫ്റ്റ് വില്ലേജിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന കളരി അക്കാദമിയുടെ കോൺസെപ്റ്റ് പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും

ചർച്ചകൾ സൌഹാർദപരമായിരുന്നുവെന്നും എത്രയും വേഗം ധാരണയിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു നിർദേശങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ അനൌപചാരിക ഗ്രൂപ്പുകൾ രൂപീകരിക്കണമെന്ന് കർഷക സംഘടനകളോട് ഗവൺമെന്റ് നിർദേശിച്ചതായും ഈ നിർദേശങ്ങൾ പിന്നീട് ഔപചാരികമായി ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതായും തോമർ പറഞ്ഞു

രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ നടപടികളെടുത്തിട്ടുണ്ടെന്നും തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പരിശ്രമങ്ങൾ നടത്തുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി

രുര ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുവിതരണ ശൃംഖലയായി സപ്പൈകോയെ മാറ്റുന്നതിന് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു കൊല്ലം ചെറുമൂട് ആരംഭിച്ച സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കണ്ണനല്ലൂരിലെ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു രുര കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുജനങ്ങൾക്ക് അർഹമായ സേവനം ഉറപ്പാക്കുന്നതിൽ ജീവനക്കാർ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി പി തിലോത്തമൻ കൊല്ലത്ത് പറഞ്ഞു നിർമ്മാണം പൂർത്തിയായ ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രുമ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കൊച്ചി നാഷണൽ സർവീസ് സ്കീമിന്റേയും സംസ്ഥാന കൃഷി വകുപ്പിന്റേയും സംയുക്ത കാർഷിക സംരംഭമായ ഐഡിൽ ടു ഐഡിയൽ പച്ചക്കറി കൃഷി മന്ത്രി വി

തുടർന്ന് അഞ്ച് ഏക്കറിലേക്ക് കൂടി വ്യാപിപ്പിക്കും രും സമഗ്ര ശിക്ഷ കേരള ആവിഷ്കരിച്ച ഓൺലൈൻ പരിശീലന പദ്ധതി ഡിജിഫിറ്റിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി